ത കോവിഡ് ബാധിച്ച് വിദേശത്ത് ഇന്നലെ എട്ട് മലയാളികൾ മരിച്ചു

വാർത്തകൾ വിശദമായി കോവിഡ് മഹാമാരിയെ നേരിടുന്നതിന് രാജ്യത്ത് മൂന്നാംഘട്ട ലോക്ഡൌണിന് തുടക്കമായി

ഗ്രീൻസോണുകളിൽ ആളുകൾ കൂട്ടംകൂടുന്നത് ഒഴികെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളും അനുവദിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ന്യൂഡൽഹിയിൽ അറിയിച്ചു കൂടുതൽ പ്രവർത്തനങ്ങൾ അനുവദിക്കുക വഴി ലോക്ഡൌണിൽ നിന്ന് രാജ്യം ഘട്ടംഘട്ടമായി പുറത്തുവരുന്നു എന്ന സന്ദേശം നൽകാനാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രുമ കോവിഡ് പശ്ചാത്തലത്തിൽ ചേരിചേരാ ഉച്ചകോടി ഇന്ന് വീഡിയോ കോൺഫറൻസ് വഴി നടക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും കൊറോണ വൈറസ് ബാധക്കെതിരായ പോരാട്ടത്തിൽ അംഗ രാജ്യങ്ങളുടെ ഏകോപനം വർധിപ്പിക്കുന്ന കാര്യം ഉച്ചകോടി ചർച്ച ചെയ്യും

രംഭ ഇന്നലെ ഒരാൾക്കുകൂടി രോഗം ഭേദമായതോടെ ഇനി ആറു പേരാണ് കാസർകോഡ് ജില്ലയിൽ ചികിത്സയിലുള്ളത്

രംഭ കൊല്ലം ജില്ലയിലെ നിലമേൽ ഗ്രാമ പഞ്ചായത്തിനെ പൂർണ്ണമായും ഹോട്ട്സ്പോട്ട് നിയന്ത്രണങ്ങളിൽ നിന്നും ഒഴിവാക്കി

നഗര പ്രദേശങ്ങളിൽ കോംപ്ളക്സുകളിലെ വ്യാപാര സ്ഥാപനങ്ങളും ഗ്രാമപ്രദേശങ്ങളിൽ മാളുകൾ ഒഴികെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും തുറക്കാം നാലു ചക്ര വാഹനങ്ങളിൽ രണ്ടു പേർക്കും ഇരു ചക്ര വാഹനത്തിൽ ഒരാൾക്കും സഞ്ചരിക്കാം രുദ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച മാനന്തവാടി മേഖലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് വയനാട് ജില്ലാ കളക്ടർ പറഞ്ഞു ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ മാനന്തവാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കുന്നതിനും പുറത്ത് പോകുന്നതിനും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി ജില്ലാ പോലീസ് മേധാവി ആർ

പാലാ മേവട പന്തത്തല സ്വദേശി അദ്വൈത് മുൻവൈദികൻ കിഴക്കെത്തെരുവ് പട്ടമല റവ

ജോൺ കുണ്ടറ സ്വദേശി ഗീവർഗീസ് എം പണിക്കർ എന്നിവരാണ് അമേരിക്കയിൽ മരിച്ചത് ത്വശൂർ എടക്കഴിയൂർ സ്വദേശി മുഹമ്മദ് ഹനീഫ യു എ ഇ യിലും പത്തനംതിട്ട നെല്ലിക്കാല സ്വദേശി റോഷൻ കുട്ടി തിരുനാവായ സ്വദേശി അഷ്റഫ് എന്നിവർ അബുദാബിയിലും കോതമംഗലം അയക്കാട് സ്വദേശി നിസാർ അജ്മാനിലും തിരൂർ ഇരിങ്ങാവൂർ സ്വദേശി സൈതലവിക്കുട്ടി ഹാജി ഷാർജയിലുമാണ് മരിച്ചത്

എസ്

ഇതോടെ കോവിഡ് ബാധിതരുടെ എണ്ണം പതിനാലായിരം പിന്നിട്ടു

രംഭ ബോട്ടുകൾക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ പ്രത്യേക രജിസ്ട്രേഷൻ നിർബന്ധമാണെന്ന് മന്ത്രി ജെ

ബോട്ടുകൾക്ക് മത്സ്യബന്ധനാനുമതി നൽകിയ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചർച്ചചെയ്യാൻ കൊല്ലം കലക്ട്രേറ്റിൽ കൂടിയ ശക്തികുളങ്ങര നീണ്ടകര അഴീക്കൽ ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റി അംഗങ്ങളുടെ യോഗത്തിൽ അധ്യക്ഷതവഹിക്കുകയായിരുന്നു മന്ത്രി

രുദ അതിഥി തൊഴിലാളികളെ തിരികെ നാട്ടിലേക്ക് അയക്കുന്നതിന് നാളെ ആദ്യ ട്രെയിൻ ഒരുക്കുന്നതിന് നടപടികൾ പുരോഗമിച്ച് വരുന്നതായി വയനാട് ജില്ലാ കളക്ടർ അറിയിച്ചു

രുക വിദേശത്തും ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരെ അതതു രാജ്യങ്ങളും സംസ്ഥാനങ്ങളും ദ്രുതഗതിയിൽ തിരിച്ചുകൊണ്ടുപോകുമ്പോൾ മലയാളികൾ നാട്ടിലേക്കു മടങ്ങാനാവാതെ ഒറ്റപ്പെട്ടെന്ന് മുൻമുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടി മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറഞ്ഞു ഇവർക്കായി ചാർട്ടേഡ് വിമാനവും പ്രത്യേക ട്രെയിനും അടിയന്തരമായി ഏർപ്പാടാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ഇവർ സഞ്ചരിച്ചിരുന്ന കാർ അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു

പരിക്കുപറ്റിയവരുടെ നില ഗുരുതരമാണ്